വൈകുന്നേരത്തോടുകൂടി ഫലപ്രഖ്യാപനം പൂർണ്ണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്

സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലെയും അഞ്ച് വി വി പാറ്റ് മെഷീനുകൾ തിരഞ്ഞെടുത്ത് വിപിപാറ്റ് സ്ലിപ്പുകളുമായി താരതമൃം ചെയ്യും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മൊബൈൽ ഫോണുകൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട്

തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ന്യൂഡൽഹിയിൽ തുടരുകയാണ്

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആധാരമാക്കിയുള്ള വോട്ടെണ്ണൽ സുതാര്യമാക്കുകയാണ് കൺട്രോൾ റൂമിന്റെ ലക്ഷ്യം

പ്രാദേശിക താൽപരൃങ്ങൾ സഫലീകരിക്കുന്നതിന് എൻ

എ കരുത്തുറ്റ ശക്തിയായി മാറിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വോട്ടോ അധികാരമോ അല്ല എൻ ഡി എ ലക്ഷ്യമിടുന്നതെന്നും മറിച്ച് പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി റിനൽ ജോസഫ്

ചുഴലിക്കാറ്റ് പ്രളയം തുടങ്ങിയവയെകുറിച്ചുള്ള മുന്നറിയിപ്പ് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും നൽകാനാവും അതിന് പുറമെ കാർഷിക മേഖലയ്ക്കും ഏറെ പ്രയോജനകരമാണിത് കൃഷിയുടെ അവസ്ഥ വനവിസ്തൃതി എന്നിവ കൃത്യമയി നിരീക്ഷിക്കാനുള്ള സംവിധാനവുമുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മേഖലയിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീർ പോലീസും സൈന്യവും സ്രംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെ സുരക്ഷാ വെടിയുതിർക്കുകയായിരുന്നു

കൃഷി ഔഷധ നിർമാണം ഐ ടി ബഹിരാകാശ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഓർഗനൈസേഷനുമായി അനുഭവങ്ങൾ പങ്കുവെയ്ക്കാൻ തയ്യാറാണെന്ന് സുഷമ സ്വരാജ് പറഞ്ഞു

അന്താരാഷ്ട്ര ജൈവ വൈവിധൃദിനത്തോടനുബന്ധിച്ച് ട്വീറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം

പരിസ്ഥിതി സന്തുലനത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്ന് നൽകണം ജൈവ വൈവിധ്യം കാത്ത് സൂക്ഷിച്ച് ഹരിതഗ്രഹത്തെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

ലോക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ പുറത്തുവിട്ട കണക്കുകൾ യാഥാർത്ഥ്യമാകില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു

ലോകത്തെ എല്ലാ വികസിത സമ്പദ്ഘടനയിലും വളർച്ച നിരക്കിൽ വൃതിയാനമുണ്ടാവുമെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച യു എൻ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്

ദിനംപ്രതി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവരാണ് സൈനികർ

സെലസ്റ്റിയൽ ബോഡീസ് എന്ന കൃതിക്കാണ് അവാർഡ് വർത്തമാന കാലത്തെയും ഭൂതകാലത്തെയും സങ്കീർണമായ അടിമ ജീവിതം നയിക്കുന്ന മൂന്ന് സഹോദരിമാരുടെ പറയുന്നതാണ് കൃതി